റിപ്പബ്ലിക് ദിനം വിവിധ സംസ്ഥാനീങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സമുചിതമായി ആഘോഷിച്ചു

ഒരു പ്രശ്നത്തിനും അക്ര്മം പരിഹാരമല്ലെന്ന് പ്രധാമന്ത്രി നരേന്ദ്ര മോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാതിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

ന്യൂഡൽഹി യിലെ ചെങ്കോട്ടയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയപതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു രാജ്യത്തിന്റെ സംസ്കാരവും നാനാത്വവും വിളിച്ചോതുന്ന വർണശബളമായ റിപ്പബ്ലിക്ദിന പരേഡിനാണ് രാജ്പഥ് സാക്ഷിയായത്

ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാന്റമുന്ത് നരേന്ദ്ര മോദിയുടെ സന്ദർശനത്തോടെയാണ് റിപ്പബ്ലിക്ടു ദിന പരേഡിന് തുടക്കമായത് അമർ ജവാൻ ജ്യോതിയിലെത്തി രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന പതിവ് മാറ്റിപ്പച്ചാട്ട്ണ് ഇത്തവണ പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തിയിത്

തുടർന്ന് വിജയ്ചൌക്കിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് റിപ്പബ്ലിക്ദിന പരേഡിന് തുടക്കമായി

ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി നിർമല സീതാരാമൻ പ്രകാശ്ജാവദേക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ മറ്റ് കക്ഷിനേതാക്കൾ തുടങ്ങയവർ സന്നിഹിതരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധി മുൻപ്രധാനമന്ത്രി മൻമോഹൻ സിങ് മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനി എന്നിവരും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു

രാജ്യത്തിന്റെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന പരേഡായിരുന്നു രാജ്പഥിൽ അരങ്ങേറിയത് റിപ്പബ്ലിക്ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് ഡൽഹി പൊലീസിന്റെയും മറ്റ് സുരക്ഷാസേനകളുടെയും ഇരുപതിനാ യിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിച്ചിരുന്നു

ത്രിപുരയിൽ വിവിധ സേനാവിഭാഗങ്ങളോടൊപ്പം എൻ സി ്സി സകൌട്ട്സ് ആന്റ് ഗൈഡ്സ് എൻ

കൃഷി യാണ് മഹാരാഷ്ട്രയുടെ സമ്പദ് വൃവസ്ഥയുടെ നട്ടെല്ലെന്ന് ഗവർണർ ഭഗത്സിംഗ് കോഷിയാരി റിപ്പബ്ലിക് ദിനസന്ദേശത്തിൽ പറഞ്ഞു കടക്കെടുതിയിലായ കർഷകർക്ക് സമാശ്വാസം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു മിസാറാമിൽ തലസ്ഥാനമായ ഐസ്വാളിൽ ഗവർണർ പി

ശ്രീധരൻപിള്ള ദേശീയ പതാക ഉയർത്തി

പശ്ചിമേഷ്യയിലും അത്യുത്സാഹപൂർവ്വം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതായി ആകാശവാണി ദുബായ് ലേഖകൻ അറിയിച്ചു

ഹൈക്കമ്മീഷണർ തരൺജിത് സിംഗ് ബസു ദേശീയ പതാക ഉയർത്തി

ഇരു രാജ്യങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക വികസന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സമ്മാനം നൽകിയത്

കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു

ഒരു പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു പ്രശ്നമുണ്ടാക്കുന്നത് അഭികാമ്യമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാതിലൂടെ ഇന്ന് വൈകുന്നേരം ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു ശ്രീ

പ്രശ്നപരിഹാരത്തിനായി അക്രമത്തിന്റെ മാർഗ്ഗം സ്വീകരിക്കുന്നവരോട് മുഖ്യധാരയിലേക്ക് മടങ്ങുവാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

രാജ്യത്തിന്റെ പുരോഗതിയിൽ തങ്ങളുടെ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവർ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങിയത്

പ്രശ്ന പരിഹാരത്തിന് അക്രമത്തിന്റെ മാ്ർഗ്ഗം തേടിയവർ ഇപ്പോൾ സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തീന്റെയും മാർഗ്ഗത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളു എണ്ണും തിരിച്ചറിഞ്ഞതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഉന്നതതലയോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി

ഹോങ്കോങ്ങിലും ആരോഗൃ അടിയന്തരാ വസ്ഥ നിലവിലുണ്ട് വിനോദസഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി വുഹാനിലെ ഇന്ത്യാക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ബെയ്ജിംഗിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അധികാരികളുമായി സമ്പർക്കം പൂലർത്തി വരുന്നു

യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഏഷ്യയിലും കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധന്റെ നിർദ്ദേശപ്രകാരമാണ് കോൾസെന്റർ സജ്ജീകരിച്ചത് ചൈനയിലുള്ള ഇന്ത്യാക്കാരുടെ ആരോഗൃ വിവരങ്ങൾ ബെയ്ജിങ്ങിലെ സ്ഥാനപതി കാര്യാലയവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്പന്റിര്യീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോ

ഇന്ത്യൻ സംസ്കാരത്തിന് സാർവത്രികമായ കാഴ്ചപ്പാടാണുള്ളതെന്നും മതം ജാതി വർണം ഭാഷ സാമൂഹ്യ പദവി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതെന്നും ഗവർണർ പറഞ്ഞു കരസേന വ്യോമസേന അതിർത്തി രക്ഷാസേന പോലീസ് അർദ്ധ സൈനിക വിഭാഗം കുതിര പോലീസ് എൻ സി സി സ്കൌട്സ് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു

ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മാർട്ടിൻ ഗുപ്റ്റിൽ ടോപ്സ്കോററായി ് ജഡ്ജ രണ്ട് വിക്കറ്റ് നേടി

അഞ്ച് മത്സരങ്ങളുള്ള കളിയില്ലെടുമുന്നാം മത്സരം ബുധനാഴ്ച ഹാമിൽട്ടണിൽ നടക്കും